സംസ്ഥാനത്തും ലക്ഷദ്വീപിലും അടുത്തി അഞ്ച് ദിവസ ത്തേക്ക് ശക്തമായ മഴയ്ക്ക് സാധ്യത പ്ര റഷ്യൻപ്രസിഡന്റ് വ്ളാഡമിർ പുട്ടിൻ ന്യൂഡൽഹിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഇന്ന് കൂടിക്കാഴ്ച നട ത്തും സുപ്രധാന കരാറുക്കൾ ഇരു രാജ്യങ്ങളും ഒപ്പുവെ യ്ക്കും കണ്ണൂർ വിമാനത്താവളത്തിന് ് സിവിൽ എവിയേഷൻ ഡയ റക്ടർ ജനറൽ പ്രവർത്തനാനുമതി നൽകി ഐഎസ്എൽ ഫുട്ബോളിൽ കൊച്ചിയിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് മുംബൈ സിറ്റി എഫ്സിയെ നേരിടും അറബിക്ക്ടലിന്റെ തെക്ക് കിഴക്കായി ശ്രീലങ്കക്ക് സമീപം ഇന്ന് ശക്തമായി ന്യൂനമർദ്ദം രൂപപ്പെടാൻ സാഹചര്യങ്ങൾ ഒരുങ്ങിയ തായി കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ് ന്യൂഡൽഹിയിൽ അറി യിച്ചു

ഈ സാഹചര്യത്തിൽ സംസ്ഥാനത്ത് ഗവ ജാഗ്രതാനിർദ്ദേശം നൽകി ഇതിന്റെ സ്വാധീനം കാരണം സംസ്ഥാനത്തും ലക്ഷദ്വീപിലും അടുത്ത അഞ്ച് ദിവസത്തേക്ക് അതിശക്തമായ മഴക്ക് സാധ്യത യുണ്ടെന്നും കാലാവസ്ഥാ നിരീക്ഷണവകുപ്പ് അറിയിച്ചു തമിഴ്നാ ട്ടിലും പുതുച്ചേരിയിലും കനത്തമഴ പെയ്യും

മത്സ്യത്തൊഴിലാളി കൾ ഇന്നു മുതൽ കടലിൽ പോകരുതെന്നും ദീർഘനാളത്തേക്ക് മത്സ്യബന്ധനത്തിന് പോയവർ ഇന്ന് തിരികെ എത്തണമെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുളളതിനാൽ മലപ്പുറത്തും ഇടുക്കിയിലും മറ്റന്നാൾ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു

തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട എറണാക്കുളം ആലപ്പുഴ തൃശൂർ പാലക്കാട് മലപ്പുറം ജില്ലകളിൽ ഇന്ന് മഞ്ഞ അലർട്ട് പ്രഖ്യാ പിച്ചു തിരുവനന്തപുരം പത്തനംതിട്ട കോട്ടയ്ട് എറണാകുളം തൃശൂർ പാലക്കാട് കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർകോട് ജില്ലകളിൽ മറ്റന്നാൾ മഞ്ഞ അലർട്ടായിരിക്കും മുന്നറിയിപ്പിന്റെ പശ്ചാത്തലത്തിൽ അണക്കെട്ടുകളിലെ ജലനി രപ്പ് നിരീക്ഷിക്കാൻ ഉദ്യോഗസ്ഥർക്ക് തിരുവനന്തപുരത്ത് ചേർന്ന ദുരന്തനിവാരണ അതോറിറ്റിയോഗം നിർദ്ദേശം നൽകി കനത്തമഴയിലും ചുഴലിക്ക്ാറ്റിലും കാസർകോട് ജില്ലയിൽ ഇന്നലെ വൻനാശനഷ്ടങ്ങളുണ്ടായി പുതിയ ബസ് സ്റ്റാന്റിനടുത്ത് വ്യാപാര സ്ഥാപനത്തിന്റെ മേൽക്കൂര പൂർണമായും തകർന്നു കെട്ടി ടത്തിന്റെ മുകളിലെ മൊബൈൽടവറും തകർന്നിട്ടുണ്ട് നഗരത്തിലെ കെട്ടിടങ്ങൾക്ക് ക്രേടുപാടുകൾ സംഭവിച്ചു അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന മുന്നറിയിപ്പിനെ തുടർന്ന് അടിയന്തര സാഹചര്യം നേരിടുന്നതിന് മുന്നൊരുക്കങ്ങൾ നടത്താൻ എറണാകുളം ജില്ലയിൽ വിവിധ വകുപ്പുകൾക്ക് ചുമതലകൾ നൽകി കൂടുതൽ മഴവെള്ളം ഉൾകൊള്ളാവുന്ന വിധം ജലനിരപ്പ് ക്രമീകരിക്കുന്നതിന് ഭാഗമായി പാലക്കാട് ജില്ലയിലെ ഡാമുകളുടെ ഷട്ടറുകൾ ഉയർത്തിത്തുടങ്ങി

മീങ്കര ചുള്ളിയാർ വാളയാർ കാഞ്ഞിരപ്പുഴ ഡാമുകൾ തുറക്കുന്നതിന് മുന്നോടിയായി ആദ്യഘട്ട മുന്നറിയിപ്പുകൾ നൽകി ഡാമുകളുമായി ബന്ധപ്പെട്ട പുഴയുടെ തീരത്തു താമസിക്കുന്നവർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് മണ്ണാർക്കാട് കരടിയോട് ആദിവാസി കോളനിക്കു സമീപം ചെറിയ തോതിൽ ഉരുൾപൊട്ടിയതിനെ തുടർന്ന് പ്രദേശവാസികൾക്ക് മാറിത്താമസിക്കാൻ നിർദ്ദേശം നൽകി കഴിഞ്ഞ മഴയ്ക്ക് പത്തുപേരുടെ മരണത്തിനിട യാക്കിയ നെന്മാറ അളുവശ്ശേരിയിലെ ഉരുൾപൊട്ടിയ പ്രദേശത്തു നിന്നും കുടുംബങ്ങളെ മാറ്റിപാർപ്പിക്കും ഇടുക്കി ജില്ലയിൽ പൊൻമുടി മാട്ടുപ്പെട്ടി ഡാമുകളിലെ കൂടുതൽ വെളളം തുറന്നു വിടും

മൂന്നാർ മുതിരപ്പുഴ ക്ലാർകുട്ടി ലോവർപെരിയാർ എന്നീ മേഖലകളിലൂള്ളവർ അതീവ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ അറിയിച്ചു

പന്നിയാർ മുതിരപ്പുഴയാർ പെരിയാർ എന്നീ നദികളുടെ തീരത്തുളളവർ അതീവ ജാഗ്രത പാലിക്കണ്മെന്ന് ഇടുക്കി ജില്ലാ കലക്ടർ അറിയിച്ചു കൊല്ലം തെൻമല പ്രപ്പാർ അണക്കെട്ടിന്റെ മൂന്ന് ഷട്ടറുകൾ ഇന്ന് രാവിലെ ഒൻപ്പതിന് തുറക്കുമെന്ന് ജില്ലാ കലക്ടർ അറിയിച്ചു കല്പടയാറിന്റെ ഇരുകരകളിലും താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണ്മെന്ന് കലക്ടർ പറഞ്ഞു പത്തനംതിട്ട ജില്ലയിൽ ഉരുൾപൊട്ടലും വെളളപ്പൊക്കവും ഉണ്ടാ കാൻ ഇടയുളള താലൂക്കുകളിൽ ഇന്ന് മുതൽ ദുരിതാശ്വാസ ക്യാമ്പു കൾ സജ്ജമാക്കും ജലനിരപ്പ് ഉയരുന്ന മുറയ്ക്ക് ജില്ലാ ദുരന്തനിവാരണ അതോറി റ്റിയുടെ അനുമതിയോടെ ഡാമുകൽ തുറന്ന് വെളളം പുറത്തേക്ക് ഒഴുക്കും ബുധനാഴ്ച രാത്രി മുതൽ ശക്തമായ മഴയാണ് ജില്ലയിലെ പല പ്രദേശങ്ങളിലും ലഭിച്ചികൊണ്ടിരിക്കുന്നത് കോഴിക്കോട്ട് ജില്ലാതല ദുരന്തനിവാരണ അതോറിറ്റി ജില്ലാക ലക്ടറുടെ അധ്യക്ഷതയിൽ യോഗം ചേർന്ന് സ്ഥിതി അവലോകനം ചെയ്തു

കാലാവസ്ഥ സംബന്ധിച്ചു വിവരങ്ങൾ ജനങ്ങളിലേക്ക് കൂടുതൽ വ്യക്തമായും ലളിതമായും എത്തേണ്ടതു ണ്ടെന്ന് ഗവർണർ പി സദാശിവം അഭിപ്രായപ്പെട്ടു ഇക്കാര്യങ്ങളുടെ ഏകോപനത്തിൽ ഐഎസ് ആർഒ യ് ക്ക് മുൻകൈയെടുക്കാനാകുമെന്നും അദ്ദേഹം പറഞ്ഞു ലോകബഹിരാകാശ വാരാചരണത്തിന്റെ ഉദ്ഘാടനം തുമ്പ വിഎസ്എസ്സിയിൽ നിർവഹിക്കുകയാ ്യീരുന്നു ഗവർണർ പ്രളയം തകർത്ത കേരളത്തിന്റെ പുനർന്നിർമാണം അതിവേഗം പൂർത്തിയാക്കുമെന്ന് മുഖ്യമന്ത്രി ്ര പിണ്റായി വിജയൻ പറഞ്ഞു

പ്രകൃതിക്ഷോഭത്തിൽ തകർന്ന സംസ്ഥാനത്തെ തീരമേഖലയെ വീണ്ടെടുക്കാനായി ആയിരം കോടി രൂപയുടെ പുനർനിർമാണ പ്രവർത്തനങ്ങൾ നടത്തുമെന്ന് മന്ത്രി ജെ

റഷ്യൻ പ്രസിഡന്റ് വ്ളാഡമിർ പുട്ടിൻ രണ്ടു ദിവസത്തെ സന്ദർശനത്തിനായി ഡൽഹിയിലെത്തി

പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഇന്ന് കൂടി ക്കാഴ്ച നടത്തുന്ന വ്ളാഡമിർ പുട്ടിൻ രാജ്യരക്ഷാമേഖലയിൽ ഉൾപ്പെടെ സുപ്രധാന കരാറുകളിൽ ഒപ്പുവെയ്ക്കും

സൈനിക സഹകരണത്തിന് സംയുക്ത പ്രവർത്തക സംഘം രൂപീകരിക്കുന്നത് സംബന്ധിച്ച കരാറിലും ഇരു നേതാ ക്കളും ഒപ്പുവെയ്ക്കും

കണ്ണൂർ വിമാനത്താവളത്തിന് പ്രവർത്തിക്കുന്നതിന് സിവിൽ ഏവിയേഷൻ ഡയറക്ടറുടെ ലൈസൻസ് ലഭിച്ചു അവസാനത്തെ പരീക്ഷണ പറക്കലും വിജയകരമായതിനെതൂട്ടർന്നാണ് അനുമ തി ലഭിച്ചത്

വിമാനത്താവള് ് സന്ദർശിക്കുന്നതിന് ഇന്ന് മുതൽ പൊതുജ നങ്ങൾക്ക് അനുമതി നൃൽകും രാവിലെ പത്ത് മുതൽ വൈകീട്ട് നാല് വരെയാണ് സന്ദർശനാനുമതി

ഐഎസ്എൽ ഫുട്ബോളിൽ കൊച്ചിയിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് മുംബൈ സിറ്റി എഫ്സിയെ നേരിടും വൈകിട്ട് ഏഴ രക്കാണ് മത്സരം പുതിയ സീസണിലെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആദ്യ ഹോം മാച്ചാണിത് ആദ്യമത്സരത്തിൽ എ ടി കെ യെ തകർത്തതിന്റെ ആത്മവിശ്വാസവുമായാണ് കേരള ബ്ലാസ്റ്റേഴ്സ് കൊച്ചിയിൽ കളിക്കാനിറങ്ങുന്നത് കൊൽക്കത്തയിൽ ഇന്നലെ നടന്ന മത്സരത്തിൽ എടികെ യെ എതിരില്ലാത്ത ഒരു ഗോളിന് തോൽപിച്ച് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ഈ സീസണിലെ ആദ്യജയം നേടി

വെളളപ്പൊക്കത്തെ തുടർന്ന് മാറ്റിവെച്ച നെഹ്റുട്രോഫി വളളം കളി മത്സരം നവംബറിൽ നടത്താൻ തീരുമാനിച്ചതായി മന്ത്രി ഡോ

കുട്ടനാടിന്റെയും ടൂറി സത്തിന്റെയും പുനരുജ്ജീവനത്തിനായി നടത്തുന്ന വളളംകളി ആർഭാടമില്ലാതെ ചെലവ് ചുരുക്കിയായിരിക്കും നടത്തുക ആലപ്പുഴ ജില്ലയിലെ വെട്ടിക്കോട് നാഗരാജ ക്ഷേത്രത്തിലെ ആയി ല്യോത്സവം ഇന്ന് നടക്കും ഉത്സവത്തോടനുബ്ബ്സിച്ച് ഇന്ന് മാവേ ലിക്കര താലൂക്കിലെ എല്ലാ ഗവ ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും കലക്ടർ പ്രാദേശിക അവധി നൽകി പൊതുപ രീക്ഷകൾക്ക് മാറ്റമില്ല

ശബരിമലയിൽ സ്ത്രീ പ്രവ്യേശം അനുവദിച്ച സുപ്രീംകോടതി വിധി പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് ജില്ലാ കോൺഗ്രസ് കമ്മ റ്റിയുടെ നേതൃത്വത്തിൽ പത്തനംതിട്ടയിൽ ഇന്ന് ഏകദിന ഉപവാസം നടത്തും പ്രതിപിക്ഷനേതാവ് രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യും ശബരിമലയിലെ സ്ത്രീ പ്രവേശന കാര്യത്തിൽ സുപ്രീംകോടതി വിധിക്കെതിരെ പുനഃപരിശോധനാ ഹർജി നൽകുമെന്ന് എൻഎസ് എസ് ജനറൽ സെക്രട്ടറി ജി സുകുമാരൻനായർ അറിയിച്ചു പുനഃപ രിശോധനാ ഹർജി നൽകേണ്ടതില്ലെന്ന സംസ്ഥാന ഗവ ന്റെയും തിരുവിതാംകൂർ ദേവസ്വംബോർഡിന്റെയും നിലപാട് നിരാശാജന കമാണെന്ന് അദ്ദേഹം കോട്ടയത്ത് പറഞ്ഞു ശബരിമലയിലെ സ്ത്രീ പ്രവേശം സംബന്ധിച്ച സുപ്രീംകോടതി വിധിക്കെതിരെ പുനഃപരിശോധന ഹർജി നൽകാൻ വിമുഖത കാണി ക്കുന്ന തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എം പത്മ കുമാർ ഉടൻ രാജിവെയ്ക്കണമെന്ന് കേരള ക്ഷേത്ര സംരക്ഷണസ മിതി കോഴിക്കോട്ട് ആവശ്യപ്പെട്ടു മദ്യനിർമാണശാലകൾക്ക് അനുമതി നൽകിയതിലെ അഴിമതിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയും മന്ത്രി ടി

രാമകൃഷ്ണനെതിരെയും അന്വേഷണം നടത്തുന്നതിന് മന്ത്രിസഭയുടെ ഉപദേശം കൂടാതെ തന്നെ അനുമതി നൽകണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഗവർണർക്ക കത്ത് നൽകി

ഇക്കാര്യത്തിൽ മന്ത്രിസഭയുടെ ഉപ്പദേശം ഇല്ലാതെ തന്നെ ഗവർണ്ണറിൽ നിക്ഷിപ്തമായ അധികാരം ഉപയോഗിച്ച് കുറ്റാരോപിതരായ മന്ത്രിമാർക്കെതിരെ അന്വേഷണം നടത്താൻ അനുമതി നൽകാൻ കഴിയുമെന്ന് കാണിച്ചാണ് അദ്ദേഹം ഗവർണർക്ക് വീണ്ടും കത്ത് നൽകിയത് വിദ്യാലയ പുനർന്നർമാണത്തിന് മാസ്റ്റർ പ്താൻ തയ്യാറാക്കുമെന്ന് മന്ത്രി പ്രൊഫ

അടുത്തവർഷം ജൂൺ ഒന്നിന് തന്നെ പ്രവേശനോത്സവം നടത്താനാകുന്ന തരത്തിൽ സ്കൂളുകളുടെ പുനർനിർമാണമാണ് ലക്ഷ്യമിടുന്നതെന്ന് അദ്ദേഹം വൃക്തമാക്കി പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ ജില്ലാതല പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്യാനായി കോഴിക്കോട്ട് ചേർന്ന വിദ്യാഭ്യാസ വകുപ്പ് മേഖലാതല ഉദ്യോഗസ്ഥരുടെ യോഗ ത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി പ്രളയത്തിൽ കമ്പ്യൂട്ടറുകൾ നഷ്ടപ്പെട്ട സ്കൂളുകൾക്ക് ഒരു മാസത്തിനകം പുതിയ കമ്പ്യൂട്ടറുകൾ നൽകുമെന്ന് മന്ത്രി പ്രൊഫ

സംസ്ഥാനത്തെ ആദ്യ ജൈവവൈവിധ്യ ബ്ലോക്ക് പഞ്ചായ ത്തായി കോഴിക്കോടിനെ മാറ്റുന്ന പദ്ധതിക്ക് തുടക്കമായി ഹരി തകേരളമിഷന്റെയും മലബാർ ബൊട്ടാണിക്കൽ ഗാർഡന്റെയും സഹകരണത്തോടെയാണ് പദ്ധതി നടപ്പാക്കുക പ്രസിദ്ധ സംഗീതജ്ഞനും സംഗീതസംവിധായകനുമായിരുന്ന പത്മശ്രീ കെ രാഘവൻമാസ്റ്ററുടെ പേരിൽ സബർമതി ഏർപ്പെടു ത്തിയ സംഗീതപുരസ്കാരത്തിന് പ്രസിദ്ധ സംഗീത്ജ്ഞ ഡോ കെ ഓമനക്കുട്ടിയെ തിരഞ്ഞെടുത്തു ബുധനാഴ്ച്ച് പ്രൈകീട്ട് കോഴി ക്കോട്ട് ചെറുവണ്ണൂരിൽ പുരസ്കാരം സമ്മാനിക്കും എടവണ്ണപ്പാറയിൽ അയൽവാസിയെ വാഹനമിടിച്ച് കൊലപ്പെ ടുത്തിയ സംഭവത്തിൽ പിടിയിലായി പ്രതി അബ്ദുൾ ഖാദറിനെ കോടതി റിമാന്റ് ചെയ്തു അബ്ദുൾ ഖാദറിന്റെ അയൽവാസി യായ മൂഹമ്മദ് കുട്ടിയെ ബൈക്കിൽ സഞ്ചരിക്കുമ്പോൾ കാറു മായി വന്നഇയാൾ ഇടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു